പരമ്പരയിൽ ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം വാർത്തകൾ വിശദമായി കാലാവസ്ഥാമാറ്റംമൂലം കർഷകർക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പ്രധാൻമന്ത്രി ഫസൽ ബീമ യോജന പ്രധാന പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇതിനകം കോടിക്കണക്കിന് കർഷകരാണ് ഈ കർഷക സൌഹൃദ ഇൻഷൂറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കളായതെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു പദ്ധതി അഞ്ച് വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി ലഭിച്ച അഭിനന്ദനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നരേന്ദ്രമോദി കർഷകരുടെ ചെറുതും വലുതുമായ പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനും കാർഷിക മേഖലയുടെ പുരോഗതിക്കും ഫസൽബീമാ പദ്ധതി തികച്ചും ഫലപ്രദമാണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി രുമ സംസ്ഥാനത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പത്രികാ സമർപ്പണം ഇന്നുകൂടി മുന്നണി പാർട്ടി സ്ഥാനാർഥികളും കക്ഷിരഹിതരും പത്രികാ സമർപ്പണം പൂർത്തിയാക്കുന്നതോടെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ആദ്യഘട്ടം പൂർത്തിയാകും നാളെയാണ് സൂക്ഷ്മ പരിശോധന തിങ്കളാഴ്ചകൂടി പത്രിക പിൻവലിക്കാം കൂടുതൽ വിവരങ്ങളുമായി രജ്ന കെ ആസാദ്

ശബരിമലയിൽ ഒരു പ്രശ്നവുമില്ലെന്നും ഇപ്പോൾ പലർക്കും ശബരിമലയിൽ വലിയ താൽപര്യമാണെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു ശബരിമല വിഷയത്തിൽ കടുംപിടുത്തം നടത്തി സംഘർഷഭൂമിയാക്കിയതിനും സന്നിധാനത്തെ ആചാരലംഘനം നടത്തിയതിനും മുഖ്യമന്ത്രി പരസ്യമായി മാപ്പുപറയണമെന്ന് ഇന്നലെ പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രിയുടെ ഖേദപ്രകടനത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ യുവതീപ്രവേശനം സാധ്യമാകുന്ന തരത്തിൽ ഇടതുഗവൺമെന്റ് സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ഉടൻ പിൻവലിക്കുകയാണ് വേണ്ടതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അഭിപ്രായപ്പെട്ടു ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ മനീതി സംഘത്തെയും അവിശ്വാസികളെയും ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലാണ് സന്നിധാനത്തേക്ക് കൊണ്ടുപോയതെന്ന് ബി ജെ

സംസ്ഥാന പ്രസിഡന്റ് കെ

ശബരിമല വിഷയത്തിൽ ഇരട്ടത്താപ്പാണ് ഇടതു ഗവൺമെന്റ് പുലർത്തുന്നതെന്ന് അദ്ദേഹം കാസർകോട്ട് പറഞ്ഞു

എസിന്റെ ജീവിതം കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്നും താങ്ങാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു ഇന്നത്തെ കേരളത്തിന്റെ അടിത്തറ രൂപപ്പെടുത്തിയത് ഇ എം എസ് ഗവൺമെന്റ് ആണെന്നും അതിന്റെ ബലംകൊണ്ട് എല്ലാ തകർക്കൽ ശ്രമങ്ങളെയും സംസ്ഥാനത്തിന് അതിജീവിക്കാനായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏലംകുളത്ത് ഇ എം എസ് സ്മാരക സാംസ്കാരിക സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ രുര വോട്ടർമാർക്ക് ഒന്നിലേറെ തിരിച്ചറിയൽകാർഡ് നൽകിയെന്ന പരാതിയിൽ മുഴുവൻ ജില്ലകളിലും പരിശോധന നടത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി വോട്ടർപട്ടികയിൽ ഒന്നിലധികം തവണ പേരുചേർക്കാൻ ബോധപൂർവം ശ്രമം ഉണ്ടായോയെന്ന് പരിശോധിച്ച് നാളേക്കകം റിപ്പോർട്ട് നൽകാൻ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി കാസർകോട് കോഴിക്കോട് ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ പരിശോധന നടത്താൻ ബുധനാഴ്ച നിർദ്ദേശം നൽകിയിരുന്നു മറ്റ് ജില്ലകളിലും ഇക്കാര്യം പരിശോധിക്കാൻ ഇന്നലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകുകയായിരുന്നു

എ

അബ്ദുള്ളക്കുട്ടിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകിട്ട് നാലിന് ബി ജെ

അഖിലേന്ത്യാ വക്താവ് ഗോപാലകൃഷ്ണ അഗർവാൾ മുഖ്യപ്രഭാഷണം നടത്തും

ഇതോടെ രണ്ട് ജയം വീതം സ്വന്തമാക്കി ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പമായി

പരമ്പരയിലെ അവസാന മത്സരം നാളെ അഹമ്മദാബാദിൽ നടക്കും

കോഴിക്കോട്ടും തിരുവനന്തപുരത്തുമൊഴികെ മറ്റെല്ലാ ജില്ലകളിലും ഇരുനൂറിൽ താഴെയാണ് പുതിയ രോഗികളുടെ എണ്ണം

ദേദ എറണാകുളം ജില്ലയിൽ അറുപതിനുമേൽ പ്രായക്കാരായ എല്ലാവർക്കും വാക്സിൻ നൽകുന്നതിന്റെ ഭാഗമായി മൊബൈൽ വാക്സിനേഷൻ ടീം പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ കളക്ടർ ടീമിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു

അഞ്ച് മൊബൈൽ ടീമുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്

ദേദ കോവിഡ് കേസുകൾ കുറയുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്നത് അപകടകരമാണെന്ന് കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ മുന്നറിയിപ്പ് നൽകി മാസ്ക് ധരിക്കുന്നതിലും സാമൂഹിക അകലം പാലിക്കുന്നതിലും കൈകൾ അണുമുക്തമാക്കുന്നതിലും വിട്ടുവീഴ്ച പാടില്ലെന്ന് മെഡിക്കൽ ഓഫീസർ ഓർമിപ്പിച്ചു

മാസ് കോവിഡ് വാക്സിനേഷൻ സെന്ററുകളിൽനിന്ന് ഓരോ ദിവസവും മൂവായിരത്തോളംപേർ വാക്സിൻ സ്വീകരിക്കുന്നുണ്ട് ദ്ദേ ശബരിമലയിൽ ഉത്രം മഹോത്സവത്തിന് ഇന്ന് കൊടിയേറും

ദേദ സംസ്ഥാനത്ത് ചൂട് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കണം

രുഭ പ്രശസ്ത ഗിറ്റാറിസ്റ്റ് ആർച്ചി ഹട്ടൻ കോഴിക്കോട്ട് നിര്യാതനായി

ബാബുരാജിന്റെയും കോഴിക്കോട് അബ്ദുൾഖാദറിന്റെയും നിരവധി ഗാനമേളകളുടെ പിന്നണി കലാകാരനായും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു